മൂന്ന് കുട്ടികൾ അടക്കം ഒരു കുടുംബത്തിലെ അഞ്ച് പേർ കൊല്ലപ്പെട്ടു

എ യിലേയ്ക്ക് ക്ഷണിച്ച് ബി

സുംസ്ഥാന അധ്യക്ഷൻ

മലപ്പൂറത്ത് ദേശീയപാതയിൽ ടാങ്കർ ലോറി മറിഞ്ഞു

പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി

കൊല്ലത്തെ നാളെ പ്രഖ്യാപിക്കും

ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

മൂന്ന് കുട്ടികൾ അടക്കം ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പൂഞ്ച് ജില്ലയിൽ നിന്നുള്ള ചൌധരി മുഹമ്മദ് റംസാനും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് മക്കളുമാണ് കൊല്ലപ്പെട്ടത് ബാലക്കോട് സെക്ടറിൽ ജനവാസ മേഖലകൾ ലക്ഷ്യംവച്ച് ഇന്നലെ രാത്രി മുതലാണ് പാക് ആക്രമണം തുടങ്ങിയതെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ ദേവേന്ദർ ആനന്ദ് അറിയിച്ചു ഷെല്ലാക്രമുണ്ണം ഇപ്പോഴും തുടരുകയാ ണ് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചുടിക്കുന്നു

ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കേണ്ട നിലപാട് യോഗം ചർച്ച ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ എം

മാരും എം

എ

മാണിയെ ബി

സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എൻ

എ യുടെ നയപരിപാടികളും വീക്ഷണവും അംഗീകരിക്കുന്ന ആർക്കും മുന്നണിയിലേയ്ക്ക് വരാമെന്ന് ശ്രീ

മുന്നണിയിലെ വാതിൽ എല്ലാവർക്കു മുന്നിലും തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ബി ജെ

പുതിയ പ്രവർത്തക സമിതി അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കുമെന്ന് റിപ്പോർട്ടുകൾ

കോൺഗ്രസി ന്റെയും രാജ്യത്തിന്റെയും ഭാവിയും പ്രതീക്ഷകളുമാണ് പാർട്ടി അധ്യ ക്ഷൻ രാഹുൽഗാന്ധിയുടെ താൽപ്പര്യ പ്രക്ടാരം തയ്യാറാക്കിയ രേഖ ഉൾക്കൊള്ളുന്നത്

ടാങ്കറിൽ നിന്ന് ചെറിയ രീതിയിൽ വാതകം ചോരുന്നുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പൂർണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസും ഫയർഫോഴ്സും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നു

പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാചകവാതകം നിറച്ച ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്

സമീപവാസികളോട് ജാഗ്രത പാലിയ്ക്കാൻ പോലീസും ഫയർഫോഴ്സും നിർദ്ദേശിച്ചിട്ടുണ്ട് ട്ടടടടടടടടടടടടടട പാലക്കാട് പാലക്കാട് മണ്ണാർക്കാട് ഉറങ്ങിക്കിടക്കുന്നവർക്കു മേൽ ബസ്സ് കയറി രണ്ടു ജാർഖണ്ഡ് സ്വദേശികൾ മരിച്ചു ഇന്ന് പുലർച്ചെ കുന്തിപ്പുഴക്ക് സമീപം ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്താണ് സംഭവം ബസ്സ് കണ്ടെത്തിയിട്ടില്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിലെ വിവരങ്ങൾ പ്രകാരം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു

ഇന്ന് പുലർച്ചെ ഉത്തർപ്രദേശിലെ മധുരയ്ക്കടുത്ത് യമുന എക്സ്പ്രസ് വേയിൽ വച്ചാണ് അപകടം നടന്നത്

കേന്ദ്ര ടൂറിസം സെക്രട്ടറി രശ്മി വർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം കുമരകത്തെ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ചാണ് രൂപരേഖ തയ്യാറാക്കിയത് വേമ്പനാട് കായലിന്റെ ശുചിത്വത്തിനും കുമരക ത്തിന്റെ അടിസ്ഥാന സൌകര്യവികസനത്തിനും ഊന്നൽ നൽകിയാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ടട്ടടടടടടടടടടടട ലോക ടൂറിസം ടൂറിസം നയം തന്ത്രം എന്നീ വിഷയങ്ങളിൽ ലോക ടൂറിസം ഓർഗനൈസേഷൻ കേന്ദ്ര ടൂറിസം മന്ത്ര്യാലയവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഏഷ്യാ പസഫിക്ട് റിഎക്സിക്യുട്ടീവ് പരിശീലന പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും നാളെ മുതൽ നാല് ദിവസം നടക്കുന്ന പരിപ്പാടി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണ ന്താനം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കോവളത്ത് ഉദ്ഘാടനം ചെയ്യും

സുള്ളിയയിലെ ്യാദ്ദോജി റാവു മംഗലൂരൂ സ്വദേശി ബാലകൃഷ്ണ ഷേണായി കാസർകോഡ് സ്വദേശി ആദിൽ എന്നിവരെയാണ് സുള്ളിയു പോലീസ് അറസ്റ്റ് ചെയ്തത്

ഉച്ചപൂജയോട് അനുബന്ധിച്ചുള്ള കളഭാഭിഷേകം അല്പ സമയം മുമ്പ് നടന്നു രാത്രിയിൽ പടിപൂജയും ഉണ്ടാകും

മുംബൈ ഡൽഹി ബംഗളൂരു ഹൈദ്രാബാദ് തുടങ്ങിയ പ്രധാന നഗ്ഗരങ്ങളിലാണ് ഡ്രൈവർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്

മധുരയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച ഈ റോഡ് സ്വദേശി ആർ

ഭക്ഷ്യ ഉൽപ്പാദന വിതരണ വിപണനരംഗ ത്തുള്ള സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് നേടിയാണ് കൊല്ലം ഈ നേട്ടം കൈവരിക്കുന്നത് നാളെ മന്ത്രി കെ

വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ആശ്രാമം